നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും

രാജ്യമെങ്ങും വിവിധ അന്യൂസ്മർണ് പരിപാടികൾ നടക്കും

പാർലമെന്റിന്റെ ബജറ്റ് സ്മ്മേളനത്തിന് മുന്നോടിയായി ന് ലോകസഭാ സ്പ്രീക്കർ വിളിച്ച സർവ്വകക്ഷിയോഗം ഇന്ന് ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം

സാമ്പത്തിക സർവ്വേ ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് നിയമസഭയിൽ വയ്ക്കും

ലോകത്ത് അഴിമതി കുറവുള്ള രാജൃങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ സ്ഥാനം മെച്ചപ്പെടുത്തി

ഹോക്കിയിൽ സ്പെയിനിനെതിരെ ഇന്ത്യൻ വനിതാ ടീമിന് ജയം

സംസ്ഥാനത്ത് നിരവധി വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും

രാഷ്ട്രപിതാവിനോടുള്ള ആദരസൂചകമായി രാജ്യമെങ്ങും ഇന്ന് രാവിലെ രണ്ട് മിനിറ്റ് മൌനം ആചരിക്കും ഗാന്ധിജിയുടെ സ്കാർഡി സ്ഥലമായ ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിൽ സർവ്വമൃത് പ്രാർത്ഥന സംഘടിപ്പിച്ചിട്ടുണ്ട്

ന്യൂഡൽഹിയിലെ ഗാന്ധി സ്റ്മൃതിയിൽ നടക്കുന്ന പ്രാർത്ഥന സമ്മേളനവും ആകാശവാണ് പ്രക്ഷേപണം ചെയ്യും

ലോകസഭ നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സ്പീക്കർ സർവ്വകക്ഷിയോഗം വിളിച്ചത് നാളെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്

അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി മുതിർന്ന ജനതാദൾ നേതാവായിരുന്ന ജോർജ്ജ് ഫെർണാണ്ടസ് പിന്നീട് സമതാ പാർട്ടി എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ചു

മുംബൈയിൽ ജെംസ് ആന്റ് ജൂവലറി ആഭ്യന്തരസമിതിക്ക് തുടക്കം കുറിച്ചു കൊണ്ട് സംസാരിക്കുകിയായിരുന്നു അദ്ദേഹം സ്വർണ്ണനയവു മായി ബന്ധപ്പെട്ട് നിതി ആയോഗുമായും ഓഹരി ഉടമകളുമായും ചർച്ച നടത്തി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉപയോഗിക്കുന്ന രാജ്യങ്ങ ളിൽ ഒന്നായി ഇന്ത്യ മാറാൻ കാരണം വൈവിദ്ധ്യമാർന്ന സാംസ്ക്കാരിക പൈതൃകമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ജെംസ് ആന്റ് ജൂവലറി ആഭ്യന്തര സമിതി നിലവിൽ വരുന്നതോടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടാനും ഈ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാനും സഹായകമാകുമെന്നും ശ്രീ സുരേഷ് പ്രഭു വൃക്തമാക്കി

പകൽ ദുൽ ജല വൈദ്യുത പദ്ധതി സംയുക്ത സംഘം ഇന്നലെ പരിശോധിച്ചു ചെനാബ് നദിതീരത്ത് കഴിഞ്ഞ ദിവസം സംഘം പദ്ധതി വിലയിരുത്താൻ എത്തിയിരുന്നു സിന്ധു നദിയുടെ പോഷക നദികളായ സത്ലജ് ബിയാസ് രവി നദികളിലെ ജലം ഇന്തൃക്കും ചെനാബ് ഝലം നദികളിലെ ജലം പാകിസ്ഥാനും നൽകുന്നതിനാണ് കരാർ വ്യവസ്ഥ ചെയ്യുന്നത്

വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജനും കിർഗിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ചിങ്കിസ് അസ്സമാട്ടോവിച്ച് ഐഡാർബ്രേക്കോവുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ഐക്യരാഷ്ട്രസഭയിലും ഷാങ്കായ് സഹകരണ സംഘടനയിലും സഹകരിച്ച് പ്രവർത്തി ക്കുന്ന കാര്യവും ഇരുനേതാക്കളും അവലോകനം ചെയ്തു

സംസ്ഥാനത്തിന്റെ പൊതു സാമ്പത്തികനിലയും കൃഷി അടിസ്ഥാന സൌകരൃവികസനം ആരോഗൃം തുടങ്ങിയ മേഖലകൾ തിരിച്ചുളള അവലോകനവും റിപ്പോർട്ടിലുണ്ടാകും വിവിധ ഗവൺമെന്റ് വകുപ്പുകളുടെ സഹായത്തോടെ സംസ്ഥാന ആസൂത്രണ ബോർഡാണ് ഇത് തയാറാക്കിയത്

ചരക്കു സേവന നികുതി പ്രാബലൃത്തിൽ വന്ന ശേഷമുളള രണ്ടാമത്തെ ബജറ്റാണ് ഇത്

ഡെൻമാർക്കും ന്യൂസിലൻഡുമാണ് മുന്നിൽ

സ്റ്റ്മാലിയ സിറിയ ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളാണ് പ്പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ളത്

തവർചന്ദ് ഗലോട്ട് പോർട്ട് ബ്ലയറിൽ സംഘടിപ്പിച്ച പരിപാടി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

വിവിധ മന്ത്രാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്കെത്തിക്കാനും പൊതുജന അഭിപ്രായം സ്വരൂപിക്കാനും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവയ്ക്കുന്നതെന്നും ശ്രീ അമിത് ഖരെ പറഞ്ഞു

വിവിധയിടങ്ങളിൽ താപനില ഗണ്യമായി കുറഞ്ഞു മഞ്ഞുവീഴ്ചയും ശക്തമായി

ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ക്യാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിൻ്റ് ഓഫീസിലേക്ക് നടത്തിയ ആക്രമണത്തിലാണ് ഇത്ര്യും പേർ കൊല്ലപ്പെട്ടത്

തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൂന്ന് തീവ്രവാദികളെ പിടികൂടിയതായി ബലൂചിസ്ഥാൻ ഇൻസ്പെക്ടർ ജനറൽ വ്യക്തമാക്കി സംഭവത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല

ന്യൂഡൽഹിയിൽ സാഹിത്യ അക്കാദമി ചെയർമാൻ ചന്ദ്രശേഖർ കമ്പാർ അവാർഡുകൾ വിത്രുണം ചെയ്തു

വഗേലയെ എൻ

പി യുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു

ഇതോടെ സ്പെയിനും ഇന്ത്യയും പരമ്പരയിൽ ഓരോ മൽസ രങ്ങൾ വിജയിച്ചു സ്പെയിനിൽ പര്യടനം നടത്തുന്ന ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ നാലാമത്തെ മൽസരം നാളെ നടക്കും